പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ത തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജിയും സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് യു ഡി എഫ് സ്പീക്ക് അപ് കേരള സത്യഗ്രഹം നടത്തുന്നു

വാക്സിന്റെ രണ്ടാംഘട്ട പരീക്ഷണത്തിന്റെ സുരക്ഷാ വിവരങ്ങൾ ഡയറക്ടറേറ്റിന് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്

കെയിൽ രണ്ട് മൂന്ന് ഘട്ട പരീക്ഷണവും ബ്രസീലിൽ മൂന്നാംഘട്ട പരീക്ഷണവും നടന്നു സൌത്ത് ആഫ്രിക്കയിൽ രണ്ട് ഘട്ട പരീക്ഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ് രുമ രാജ്യത്ത് എത്തുന്ന അന്തർദേശീയ യാത്രക്കാർക്കായി ആരോഗ്യ മന്ത്രാലയം പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി

യാത്രയ്ക്ക് മൂന്നുദിവസം മുമ്പ് ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടലിൽ യാത്രക്കാർ കോവിഡ് സംബന്ധിച്ച സത്യപ്രസ്താവന നൽകേണ്ടതാണ്

ഇതിൽ ഏഴ് ദിവസം സ്വന്തം ചെലവിൽ സ്ഥാപന ക്വാറന്റൈനും ഏഴ് ദിവസം വീട്ടിൽ സ്വയം നിരീക്ഷണവും ആയിരിക്കും

ടി

സി ആർ ടെസ്റ്റ് നെഗറ്റീവായാലും സ്ഥാപന ക്വാറന്റൈനിൽ ഇളവ് അനുവദിക്കും ദേദ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവർക്ക് സ്മാർട്ട് ഫോണും ടാബ് ലറ്റുകളും ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ആശയ വിനിമയം നടത്താൻ കഴിയുന്നത് വഴി രോഗികൾക്ക് മനോധൈര്യം ലഭിയ്ക്കുമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കയച്ച കത്തിൽ പറയുന്നു ചില ആശുപത്രികളിൽ മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ലെന്ന് കാണിച്ച് നൽകിയ പരാതികളെത്തുടർന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം രുമ കോവിഡ് സ്ഥിരീകരിച്ച തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധിക്വതർ അറിയിച്ചു രുമ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഒരാഴ്ച്ചക്കാലം പരിയാരം മെഡിക്കൽ കോളേജ് മുതൽ പീരക്കാംതടം വരെ അടച്ചിടും മെഡിക്കൽ ഷോപ്പ് ഒഴികെ കടകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് അടക്കുന്നത്

പിലാത്തറയിൽ പ്രവർത്തിക്കുന്ന ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കുടുംബാരോഗ്യ കേന്ദ്രം ഇന്നത്തേക്ക് അടച്ചു

സഹപ്രവർത്തകരായ ആരോഗ്യ പ്രവർത്തകരോട് ഹോം ക്വാറെൻ റൈനിൽ കഴിയാൻ നിർദ്ദേശിച്ചു

മേഖലയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തി അവശ്യ സാധനങ്ങൾ വാങ്ങാൻ രാവിലെ എട്ടുമുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ സമയം നൽകിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചി കണ്ടെയ്ൻമെന്റ് സോണായതിനെത്തുടർന്ന് പൊലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി കർശന പരിശോധന തുടരുകയാണ്

രുമ കോവിഡ് പോരാളികൾക്ക് രാജ്യത്തിന്റെ ആദരവുമായി വൈകിട്ട് നാലര മുതൽ ആറര വരെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മ്യൂസിക്കൽ കൺസേർട്ട് സംഘടിപ്പിക്കും കേന്ദ്ര ഗവൺമെന്റ് ചരിത്ര പ്രധാന മേഖലകളിൽ നടത്തുന്ന ലൈവ് പരമ്പരയിൽ കേരളത്തിലെ ഏക പരിപാടിയാണ് കോഴിക്കോട്ടേത്

പൊലീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി ദൂരദർശൻ സംപ്രേഷണം ചെയ്യും

ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് മന്ത്രി കെ

ആർദ്രം മിഷന്റെ ഭാഗമായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയത് പ്രാദേശിക തലത്തിൽ മികച്ച സൌകര്യങ്ങൾ ലഭ്യമാക്കി രോഗീസൌഹൃദ ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം രുമ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയായി

ഹജ്ജ് വിജയകരമായി പൂർത്തീകരിച്ചതായും തീർത്ഥാടകരിൽ ആർക്കും ഇതുവരെ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു

സഹോദരീ സഹോദര ബന്ധത്തിന്റെ ഊഷ്മളതയും വാത്സല്യവും ഓർമ്മിപ്പിക്കുന്ന ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു രാഖി കെട്ടുന്നതോടെ സ്ത്രീയുടെ സംരക്ഷണവും ബഹുമാന്യതയും ഉറപ്പാക്കാൻ സഹോദരൻ പ്രതിജ്ഞാബദ്ധനാവുകയാണ്

കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കറും രാജ്നാഥ് സിംഗും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

കർഷകരെ ശാക്തീകരിക്കാനും കാർഷിക മേഖലയുടെ വികസനത്തിനും മുന്തിയ പരിഗണനയാണ് ഗവൺമെന്റ് നൽകുന്നത് കാർഷികോല്പാദനം മുതൽ വിപണനം വരെ ഓരോ വിഷയത്തിലും ഗവൺമെന്റ് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്

എം കിസാൻ ഇ നാം തുടങ്ങിയ പദ്ധതികൾ വളരെ പ്രയോജനപ്രദമാണ്

ഇതിന്റെ ഭാഗമായി ആകാശവാണി ബഹുജൻ ഭാഷ സംസ്കൃത് ഭാഷ എന്ന പ്രത്യേക പരിപാടി രാവിലെ പ്രക്ഷേപണം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് സംസ്കൃതത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം എടുത്ത് പറഞ്ഞു

രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജിയും സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് യു ഡി

തിരുവനന്തപുരത്ത് എ ഐ

സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് ഓൺലൈനിലൂടെ സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാനത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും വ്യാപക മായിരിക്കുകയാണെന്നും ട്രഷറികളിൽപ്പോലും അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

ഐ

സി ജനറൽ സെക്രട്ടറി കെ